ഉണ്ടാകുന്നതായി ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്

എസ്

ഭക്ഷണം എന്നിവ കർശനമായി നിരോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ആലപ്പുഴ കുടിവെള്ള പൃദ്ധതിയുടെ പൊട്ടിയ പൈപ്പുകൾ പൂർണമായി മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി

സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി

രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം ചെന്നൈയിൽ നടക്കും

തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾക്ക് തടസ്സമുണ്ടാകുന്ന സാഹചരൃം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശൃം എന്നാൽ പദ്ധതിവിഹിതം വെട്ടിക്കുറച്ചിട്ടില്ലെന്നും അംഗീകരിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിന് തടസ്സമില്ലെന്നും ധനമന്ത്രി തോമസ് ഐസക് മറുപടി നൽകി റീ ബിൽഡ് കേരളയുടെ ഭാഗമായി അധിക തുക തദ്ദേശസ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വായ്പാപരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതും നികുതി വരുമാനത്തിന്റെ കുറവുമാണ് പ്രിദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കാൻ തടസ്സമെന്നും മന്ത്രി പ്റ്റഞ്ഞു

പഞ്ചായത്തുകളെ ഫണ്ട് നൽകാതെ ഗവൺമെന്റ് ശ്വാസം മുട്ടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതേതുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി

എസ് സി പരീക്ഷാഹാളിൽ ഫോൺ ഭക്ഷണം വാച്ച് പെഴ്സ് എന്നിവ കർശനമായി നിരോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

നിലവിൽ ഇത്തരം വസ്തുക്കൾ ഹാളിൽ കൊണ്ടുവരുന്നതിന് നിയന്ത്രണമുണ്ട്

സിവിൽ പൊലീസ് ഓഫീസർ പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

തൊഴിൽവകുപ്പ് തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ പട്ടിക ലൈഫ് മിഷന് കൈമാറി

മാധ്യമ പ്രവർത്തകൻ കെ

ബഷീറിന്റെ മരണത്തിനു കാരണം ഐ

എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമന്റെ അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗാണ്ണെന്നാണ് പോലീസ് റിപ്പോർട്ടെന്നും മന്ത്രി നിയമസഭയെി അറിയിച്ചു

ശൈലിജ് ഇൻട്രോ കേരളത്തിൽ ജീവിത ശ്രെലീരോഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന പ്രമേഹം നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഏകോപനമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി കെ

സമ്പൂർണ്ണ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി അശ്വമേധം പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതായും മന്ത്രി അറിയിച്ചു പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സംവരണം വിധി മുഖ്യമന്ത്രി എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ പട്ടിക വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ സുപ്രീംകോടതിയുടെ അന്തിമ വിധി വരുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സാസ്മാനത്തെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഭിന്നശേഷിക്കാർക്കായി സംവരണം ഏർപ്പെടുത്താൻ സാമൂഹ്യ ന്റീതി വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതിനായി സർവ്വകലാൾാലകളുടെ സ്റ്റാറ്റ്യൂട്ടുകൾ ഭേദഗതി ചെയ്യാനുള്ള നടപടികൾ കസ്വീകരിച്ചുവരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു

ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പുമായി ചർച്ച നടത്തിവരികയാണ് പ്രശ്നത്തിന് ശാശ്വതപരിഹാരം കാണും

പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി

പൊട്ടിയ പൈപ്പുകൾ മാറ്റുന്നതിനുള്ള പ്രവൃത്തികൾ നടക്കുകയാണ്

ഇയാൾ ഇപ്പോൾ മൂവാറ്റുപുഴ സബ്ജയിലിൽ റിമാന്റിലാണ്

ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട് നിയന്ത്രിത സ്ഫോടനം നടത്തുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടായേക്കും

അനുയോജ്യമായ സ്ഥലം അണക്കെട്ടിനായി കണ്ടെത്താൻ പഠനം നടത്തുന്നതിന് ജലവിഭവ വകുപ്പിനെ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ചു വെള്ളം സംഭരിച്ചു വെച്ച് അണ നിറയുമ്പോൾ മുപ്പത് ശതമാനം വെള്ളം ഒഴുക്കിക്കളയാനാവുന്ന വിധത്തിലുള്ള ഡാമുകളാണ് നിർമ്മിക്കുക

ജംബോ കമ്മറ്റി വേണ്ടെന്നും നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ തുട്ടിരുണമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിർദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി

എൽ സ്വകാര്യവൽക്കരിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ബെന്നി ബഹന്നാൻ എം

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ഗുണനിലവാര പരിശോധന ഉണ്ടാകുമെന്നും കിഫ്ബി അറിയിച്ചു

ശേഷന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ടി

ശേഷന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു

പാലക്കാട് കായികമേള പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളക്ക് മുട്ടിക്കുളങ്ങര എ

പൂഞ്ഞാർ എസ് എം വി സ്കൂളിന്റെ മികവിൽ ഈരാറ്റുപേട്ട ഉപജില്ല മേളയിൽ ഒന്നാം സ്ഥാനത്തു നിൽക്കുന്നു

എസ് വി ആയുർവേദ കോളേജിൽ പ്രൊഫസറുമായ ഡോ

കേരള സംസ്ഥാന ഗവൺമെന്റ് മികച്ച അധ്യാപകനു നൽകുന്ന ആത്രേയ അവാർഡ് ജേതാവാണ്